ഇന്ത്യയുടെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹ ശ്രേണിയിലെ ഒമ്പതാമത്തേതായ കാർട്ടോസാറ്റ് മൂന്നിന്റെ വിക്ഷേപണം വിജയകരം

മഹാരാഷ്ട്രയിൽ ശിവ്സേന നേതാവ് ഉദ്ധവ് താക്കറെ നാളെ മുഖ്യമന്ത്രീയ്കായി സത്യപ്രതിജ്ഞ ചെയ്യും

ആർ ഒയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഉപഗ്രഹ വിക്ഷേപണ ദൌത്യത്തിനാണ് ശ്രീഹരിക്കോട്ട ഇന്ന് രാവിലെ സാക്ഷിയായത്

നഗരാസൂത്രണം ദുരന്ത നിവാരണം തുടങ്ങിയ മേഖലകളിൽ മെച്ചപ്പെട്ട വിവരശേഖരണമാണ് ഉപഗ്രഹത്തിന്റെ ദൌത്യം

എസ് എൽ

ആർ

എസ് ആർ ഒ രാജ്യത്തിന്റെ യശസ്സ് വീണ്ടും വർദ്ധിപ്പിച്ചതായും പ്രധാനമന്ത്രി അഭിനന്ദന സന്ദേശത്തിൽ പറഞ്ഞു

എസ് ആർ ഒ തയ്യാറാക്കിയിട്ടുണ്ട്

വിദഗ്ദ്ധർ അടങ്ങിയ കമ്മിറ്റിയുടെ ശുപ്പാർശ്കൾ അനുസരിച്ച് മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്

ചന്ദ്രനിൽ മനുഷ്യനെ എത്തിക്കാനുള്ള ദൌത്യങ്ങളൊന്നും നിലവിൽ പരിഗണനയില്ലെന്നും മറ്റൊരു ചോദ്യത്തിന് മറുപടിയായി ഡോ

വളരെ കാലമായി രാജ്യം നേരിട്ട വെല്ലുവിളികൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു ജനങ്ങൾ തങ്ങളുടെ അഭിലാഷം പൂർത്തീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ ഗവൺമെന്റിനെ അധികാരത്തിലെത്തിച്ചതെന്ന് ന്യൂഡൽഹിയിൽ സ്ഥകാര്യ ടി വി ചാനലുകൾ സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുക്കവെ പ്രധാനമന്ത്രി പറഞ്ഞു

അയോധ്യ പ്രശ്നവുംമുത്തലാഖ് വിഷയവും വോട്ടുനേടാനുള്ള മാർഗ്ഗമായി മാത്രമാണ് മുൻകാല ഗവൺമെന്റുകൾ കൈകാര്യം ചെയ്തതെന്ന് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി

കമ്മീഷന്റെ ഇടക്കാല റിപ്പോർട്ട് ശ്രെനിയാഴ്ച സമർപ്പിക്കുമെന്നാണ് സൂചന

ജമ്മുകശ്മീരിന് പുതിയ പദവി നൽകിയത് കമ്മീഷന്റെ കാലാവധി ദീർഘിപ്പിക്കാനും ഇടക്കാല റിപ്പോർട്ടുകൾ സമർപ്പിക്കാനും കാരണമായിട്ടുണ്ട് വിവിധ മേഖലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന പരിഷ്കാരങ്ങളുടെയും ആഗോള മേഖലയിലെ യാഥാർത്ഥൃങ്ങൾ ഉൾക്കൊണ്ട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കാലാവധി ദീർഘിപ്പിച്ചത് കമ്മീഷനെ സഹായിക്കും

ജമ്മുകാശ്മീരീലെ യുവജനവിഭാഗത്തെ ആയുധം നൽകി ഭീകരവാദം വളർത്താൻ പാകിസ്ഥാൻ ദുരുപയോഗപ്പെടുത്തിയതായി ശ്രീ അമിത്ഷാ ആരോപിച്ചു

ഉദ്ധവ് താക്കറയും ഭാര്യയും മഹാരാഷ്ട്ര ഗവർണർ ഭഗത് സിംഗ് കോഷ്യാരിയുമായി രാജ്ഭവനിൽ ഇന്ന് അനൌദ്യോഗിക കൂടിക്കാഴ്ച നടത്തി കൂടുതൽ വിവരങ്ങളുമായി ഉദയൻ കിളിയന്നൂർ

സി

കോൺഗ്രസ് സഖ്യം തങ്ങളുടെ മുഖ്യമന്തി സ്ഥാനാർത്ഥിയായി ഉദ്ധവ് താക്കറെയെ ഇന്നലെ വൈകിട്ടാണ് തെരഞ്ഞെടുത്തത് തുടർന്ന് മഹാരാഷ്ട്ര വികാസ് അഘാടി എന്ന തങ്ങളുടെ സഖ്യത്തെ ഗവൺമെന്റ് രൂപീകരിക്കാൻ അനുവദിക്കണമെന്ന് മൂന്നു പാർട്ടി തലവന്മാരും ഗവർണറെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തു

സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഗവർണർ ഇന്ന് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുക്കൂട്ടിയിരുന്നു സമ്മേളനത്തിൽ പുതിയ എം

എ

പ്രിസൈഡിംഗ് ഓഫീസർമാർക്കു പുറകേ താൽകാലിക മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അജിത് പവാർ അശോക് ചവാൻ പ്രിഥിരാജ് ചവാൻ തുടങ്ങിയ നേതാക്കളും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തവരിൽ ഉൾപ്പെടുന്നു ഫലം വന്ന് ഒരു മാസം കഴിഞ്ഞിട്ടൂം സംസ്ഥാനത്തെ രാഷ്ട്രീയ അനിശ്ചിതത്തെ തുടർന്ന് അട്ട്ഗങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല അതിന്ദിടെ ്താൻ ഇപ്പോഴും എൻ സി

യുടെ ഭാഗമാണെന്നും ഇതിൽ ആശയ്ക്കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ലെന്നും ശ്രീ

ഇന്നലെ രാത്രി എൻ

ഇന്ന് നടക്കുന്ന എൻ

നേതാക്കളുടെ യോഗത്തിൽ അജിത് പവാർ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇന്റർനെറ്റ് സേവനങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വിഘടനവാദികൾ സാമൂഹ്യമാധ്യമങ്ങൾ വഴി വ്യാജവാർത്തകൾ നൽകുന്നത് തടയുന്നതിനാണെന്ന് ഇന്നലെ കേസ് പരിഗണിക്കവേ സംസ്ഥാന ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു ഭീകരവാദികളുടെയും പാകിസ്ഥാൻ സൈനൃത്തിന്റെയും ഇത്തരം ശ്രമങ്ങൾ ചെറുക്കേണ്ടതുണ്ടെന്നും സംസ്ഥാന ഭരണകൂടം കോടതിയെ അറിയിച്ചു മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചതിന്റെ ഫലമായി സംസ്ഥാനത്ത് ഒരു ജീവൻപോലും നഷ്ടമായില്ലെന്ന് കേന്ദ്രഗവൺമെന്റും കോടതിയെ അറിയിച്ചു

ജമ്മുകാശ്ശ്മീരിൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നത് അടക്കമുള്ളവയിൽ നീന്നും കേന്ദ്രഗവൺമെന്റിനെ ഈ വകുപ്പ് തടഞ്ഞിരുന്നു മേഖലിയിൽ ജനാധിപത്യം പൂർണമായ രീതിയിൽ ഉറപ്പാക്കുന്നതിന് പോലുക്കൃതിട്ടസ്സമായിരുന്ന ഈ അനുച്ഛേദത്തിലൂടെ ഗുണത്താക്കാളേറെ ദോഷമാണ് ഉണ്ടായിട്ടുള്ളതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി

കർണ്ണാടക മഹാരാഷ്ട്ര ഉത്തരാഖണ്ഡ് ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലേക്കാണ് അഡ്മിഷൻ നടക്കുന്നത്

സൈനിക് സ്കൂൾ അഡ്മിഷ്ൻ

രാവിലെ ഒമ്പതിന് സ്പീക്കർ പി

കൊറിയൻ താരങ്ങളോട് ഒരു പോയിന്റിനാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ തോൽവി വനിതാ വിഭാഗം കോംപൌഡ് വിഭാഗത്തിലും ഇന്ത്യൻ താരങ്ങൾ വെള്ളി സ്വന്തമാക്കി